നടപടി ടെണ്ടറെടുത്ത കമ്പനിക്ക് ചൈനീസ് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന്

എസ്

വധിച്ചു

ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ ടെണ്ടർ ലഭ്യമാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു

മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി തദ്ദേശീയ കമ്പനികൾക്ക് മുൻതൂക്കം നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു

പാക്കറ്റുകളിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമല്ലെങ്കിൽ പരാതി നൽകാൻ ഉപഭോക്താക്കൾ തയ്യാറാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു

പരിശോധനയിലൂടെ കോവിഡ് രോഗികളെ കണ്ടെത്തി കൃത്യമായ ചികിൽസ നൽകാനായതിലൂടെ രാജ്യത്തെ രോഗനിയന്ത്രണത്തിൽ പുരോഗതി കൈവരിക്കാനായെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു

ഐ

യിലെ യുവ ഗവേഷകരുടെ സ്റ്റാർട്ടപ്പ് ടീം വികസിപ്പിച്ചെടുത്ത മെഡികാബ് എന്ന മിനി ആശുപത്രി യൂണിറ്റ് ശ്രദ്ധേയമാകുന്നു

ഒരു ഡോക്ടറുടെ മുറി ഒരു ഇൻസുലേഷൻ റൂം ഒരു മെഡിക്കൽ റൂം വാർഡ് ഇരട്ട ബെഡ് ഐ സി

ആശുപത്രിയിലെ മൈക്രോ സ്ട്രക്ചറുകളിലൂടെ കോവിഡ് രോഗികളെ തിരിച്ചറിയുന്നതിനും മാറ്റിപാർപ്പിക്കുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള വികേന്ദ്രീകൃത സംവിധാനമാണ് ഇത്

ടി

ഇതിനെ പ്രത്യേക കോവിഡ് നിരീക്ഷണ വാർഡായി മാറ്റാനും കഴിയും

രാജ്യത്തുടനീളം അതിവേഗം വിന്യസിക്കാൻ കഴിയുന്ന തരത്തിൽ മിനി ആശുപത്രികൾ കൂടുതലായി വികസിപ്പിക്കാനാണ് സ്റ്റാർട്ടപ്പ് ടീം ശ്രമിക്കുന്നത്

ശർമ്മയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പരിശോധന ഫലം പോസിറ്റീവ് ആയതിനെ തുടർന്ന് അദ്ദേഹത്തെ ചികിൽസാ കേന്ദ്രത്തിലേക്ക് മാറ്റി

അവശ് സേവനങ്ങളെയും പൊതു സ്വകാര്യ ഗതാഗതത്തെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്

ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് കേരളത്തിലെ വിനായക ചതുർത്ഥി

രാജ്യത്തെ പ്രമുഖ ഗണേശ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ മഹാ ഗണപതി ഹോമങ്ങളും വിശേഷാൽ പൂജകളും തുടങ്ങിക്കഴിഞ്ഞു ഗണപതിവിഗ്രഹങ്ങൾ വീടുകളിൽ വയ്ക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതാണ് ഗണേശോത്സവത്തിലെ മുഖ്യ ച്ടങ്ങ്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ഗണേശ ചതുർത്ഥിയോട് അനുബന്ധിച്ച് ആശംസകൾ നേർന്നു ജനങ്ങളുടെ ഉത്സാഹത്തിന്റെയും സന്തോഷത്തിന്റെയും സഹിഷ്ണുതയുടെയും പ്രകടനമാണ് ഈ ആഘോഷമെന്ന് ശ്രീ

കോവിഡ് പകർച്ചവ്യാധിയുടെ വ്യാപനം കണക്കിലെടുത്ത് ആഘോഷങ്ങളിൽ ശാരീരിക അകലം സംബന്ധിച്ച മാർഗരേഖകൾ കർശനമായി പാലിക്കണമെന്ന് ഉപരാഷ്ട്രപതി ആവശ്യപ്പെട്ടു ഭഗവാൻ ഗണേശന്റെ അനുഗ്രഹവും സന്തോഷവും സമൃദ്ധിയും എപ്പോഴും ജനങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു

കോവിഡ് പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടെ ഓണക്കാല വിപണി സജീവമാണ് ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിനും തുടക്കമായി

ഇന്ന് പുലർച്ചെയാണ് ഭീകരർ ഇന്ത്യൻ ഭാഗത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് ബി എസ്

തുടർന്ന് സേന നടത്തിയ വെടിവെപ്പിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത്

മായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നയാൾ ഡൽഹി പോലീസിന്റെ പിടിയിൽ

റിഡ്ജ് റോഡിലെ വെടിവെയ്പ്പുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ അറസ്റ്റിലായതെന്ന് ഉന്നത പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം ഐ

എ അറസ്റ്റ് ചെയ്തത്

ഗന്തർബൽ പോലീസും രാഷ്ട്രീയ റൈഫിൾസും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഇയാൾ പിടിയിലായത് ഇയാളിൽ നിന്ന് ഗ്രനേഡ് അടക്കമുള്ള ആയുധനങ്ങളും കണ്ടെടുത്തു

സുപ്രീംകോടതിയുടെ യതോ ധർമ്മ സ്തതോ ജയാ എന്ന ആപ്തവാകൃം തുടരുമെന്നും പി ഐ ബി ഫാക്ട് ചെക്കിലൂടെ കേന്ദ്രം അറിയിച്ചു

കാർഷിക വിപണിയിലെ പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന മുഖ്യമന്ത്രിമാർകൃഷി മന്ത്രിമാർ എന്നിവരുമായി നടത്തിയ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജൃത്തെ കർഷകർക്കായി ഇത്ര വലിയ തുക നീക്കി വെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം ചരിത്രപരം ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു താങ്ങുവില നൽകി കർഷകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി